പിഎം കിസാൻ സമ്മാൻ നിധിയുടെ എട്ടാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വിർചലായി വിതരണം ചെയ്തു

അറബിക്കടലിൽ നൃൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് മഴയ്ക്ക് സാധൃത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ റെഡ് അലെർട്ട് പിൻവ്ലിച്ചു

ഇടവ മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറക്കും

ആനുകൂല്യങ്ങൾ ഡിജിറ്റലായി അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പ്രധാനമന്ത്രി കൈമാറി

കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ചടങ്ങിൽ പങ്കെടുത്തു

കോവിഡ് സന്ദേശം ദേശീയ രോഗ പ്രതിരോധ ഉപദേശക സമിതിയും കോവിഡ് വിദഗ്ദ്ധ സമിതിയും എടുത്ത കോവിഷീൽഡ് വാക്സിൻ ഡോസുകൾക്കിടയിലെ സമയപരിധി കൂട്ടിയതടക്കമുള്ള മൂന്ന് സുപ്രധാന തീരുമാനങ്ങളും സ്വീകാര്യവും ശാസ്ത്രീയവുമാണെന്ന് സംസ്ഥാന ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് പീഡിയാട്രിക്സ് വിഭാഗം മേധാവിയായിരുന്ന ഡോ

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ടായിരുന്നെങ്കിലും പിൻവലിച്ചു വിശദാംശങ്ങളുമായി ശ്രീലത

മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും വരും മണിക്കുറുകളിൽ ശക്തി പ്രാപിക്കാനിടയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആകാശവാണിക്കുവേണ്ടി ജോസഫ് മാർട്ടിൻ

നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ പതിവ് പൂജകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ

ഹംസക്കുഞ്ഞ് ഇന്നലെ അന്തരിച്ച മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുസ്തീം ലീഗ് നേതാവുമായിരുന്ന കെ

ഹംസക്കുഞ്ഞിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി

ഡൽഹിയിൽ നിന്ന് നാളെ തന്നെ മൃതദേഹം ഇടുക്കി കീരിത്തോട്ടിൽ എത്തിക്കും